വിവിധ അപ കടങ്ങളിൽ ഏഴു പേർ മരിച്ചു

ഷാങ്ഹായി സഹകരണ സംഘടനാ ഉച്ച ക്കോടിക്കിടെ കിങ്ദാവോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീജിൻപിങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റാണ് നിർദേശം മുന്നോട്ടുവെച്ചത് വ്യാപാര കമ്മി നേരിടാൻ ഇന്ത്യ യിൽ നിന്ന് ബസുമതി ഇതര അരിയും പഞ്ചസാരയും ഇറക്കുമതി ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ഷീ ജിൻപിങ് പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിൽ സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അനൌപചാരിക ചർച്ചകൾക്കായി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാൻ മോദിയുടെ ക്ഷണം ചൈനീസ് പ്രസിഡന്റ് സ്വീകരിച്ചു ഷാങ്ഹായി സഹകരണ ഉച്ചക്കോടി സെക്രട്ടറി ജനറൽ റാഷിദ് അലി മോവുമായും ഉസ്ബക്കിസ്താൻ താജിക്കിസ്താൻ പ്രസിഡന്റുമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി

ഇന്നലെ യുണ്ടായ വിവിധ അപകടങ്ങളിൽ ഏഴു പേർ മരിച്ചു തിരുവനന്തപുരം നെയ്യാ സ്വദേശി റ്റിൻകര ദീപ എടത്വ തവവടിയിൽ വിജയകുമാർ കോഴിക്കോട് കടലുണ്ടി ചാലിയത്ത് കുരുക്കൽകണ്ടിയാൽ ഖദീജ കണ്ണൂർ ചക്കരക്കല്ലിനടുത്ത് തലവിൽ പടിഞ്ഞാ റേയിൽ ഗംഗാധരൻ താനിക്കാംപൊയിൽ മനോഹരൻ കാസർകോട് കാഞ്ഞ ങ്ങാട് എൽകെജി വിദ്യാർത്ഥിനി ഫാത്തിമ സൈന ബ അടൂർ ദേലമ്പാടി ചെനിയപ്പൂ നായിക് എന്നിവരാണ് മരിച്ചത് മഴയിൽ കണ്ണൂർ കോഴിക്കോട് കാസർകോട് ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്

കട ലുണ്ടിക്ക് സമീപം പാളത്തിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം അഞ്ച് മണി ക്കൂറുകളോളം തടസ്സപ്പെട്ടു ഇന്നലെ വൈകിട്ടാണ് ഗതാഗതം പുനസ്ഥാപി ച്ചത് വളാഞ്ചേരി വട്ടപ്പാറയിൽ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തിരൂരിൽ മരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു പൊന്നാനി തിരൂർ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് താനൂരിൽ അഞ്ച് വള്ളങ്ങൾ തകർന്നു ശക്തമായ കാറ്റിൽ വീടുകൾ തെങ്ങ് വീണ് തകർന്നിട്ടുണ്ട് കര കടലെടുത്തിനെത്തുടർന്ന് പാലപ്പെട്ടി പൊന്നാനി പുറ ത്തൂർ താനൂർ പരപ്പനങ്ങാടി തീരങ്ങളിൽ നിരവധി വീടുകൾ ഏത് നിമി ഷവും വെള്ളത്തിലകപ്പെടുമെന്ന അവസ്ഥയിലാണ് ള്ള്ടെടു കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ എ ല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയതായി ജില്ലാ കളക്ടർ യു വി ജോസ് അറിയിച്ചു ജില്ലാ ആസ്ഥാനത്തും താലൂക്കുകളിലും ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും ദുരിതബാധി തരെ ആവശ്യമാണെങ്കിൽ പുനരധിവസിപ്പിക്കുന്നതിന്സൌകരൃം ഏർപ്പെടു ത്തിയിട്ടുണ്ടെന്നും കാറ്റും മഴയും ശക്തമായതിനാൽ ജില്ലാ ഭരണകൂടം ജാ ഗ്രത പാലിക്കുകയാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു

ചിറ്റാർ മല്ലപ്പള്ളി പ്രമാടം സീതത്തോ ട് തിരുവല്ല മേഖലകളിലാണ് വ്യാപക നാശം ഉണ്ടായത് രിയ്ക്ക് ടെടി കനത്ത മഴയെത്തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ പത്തനംത്തിട്ട മണി യാർ ഡാം തുറക്കാൻ സാധ്യത ഉണ്ടെന്നും പമ്പാ നദിയുടെയും കക്കാട്ട് ആറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു രുട്ട്ടെടു ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ അമ്പലപ്പുഴ കാട്ടൂർ എന്നിവിടങ്ങ ളിൽ കടൽക്ഷോഭം രൂക്ഷമായി നിരവധി വീടുകളിൽ വെള്ളം കയറി രിയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറ്റിനു സമീപം വട്ടയാ റിൽ രണ്ടു പേർ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ പെട്ടു ഇവരെ ഫയർഫോ ഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി അടിമാലി താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഡൽഹി മെട്രോയുടെ സേവനം തടസ്സപ്പെടുകയും ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു

നിസാമുദ്ദീനിൽ എത്തുന്ന സമയത്തിൽ മാറ്റമുണ്ടാകില്ല

കൊങ്കൺ റെയിൽവെ വഴി വരുന്ന ട്രയിനുകൾ ഒരു മണിക്കൂർ മുതൽ രണ്ടര മണിക്കൂർ വരെ വൈകാനിടയു ണ്ടെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിച്ചു

ഇത്തവണ അഞ്ചു ദിവസം കൂടുതൽ നിരോധനമുണ്ടാകും

രണ്ട ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി ചങ്ങല ബന്ധിച്ചു ഫിഷറീസ് മറൈൻ എൻഫോ ഴ്സ്മെൻറ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു നടപടി അനധികൃ ത ട്രോളിങ് തടയുന്നതിന് പട്രോളിംഗ് ശക്തമാക്കുമെന്ന് ഫിഷറീസ് അറിയി ച്ചു കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്

ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും നിപാ ലക്ഷണങ്ങളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച രണ്ടു പേരുടെ സാമ്പിൾ ഫലവും നെഗറ്റീവാണെന്ന് ആരോഗൃവകുപ്പ് അറിയിച്ചു

നിപയിൽ നിന്ന് സുഖം പ്രാപിച്ച രണ്ടു പേർ സാധാരണ നിലയിലാണെങ്കിലും ആശുപത്രി വിട്ടിട്ടില്ല

കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാ നിച്ചു

നൂറ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സ രങ്ങൾ തികച്ച സുനിൽ ഛേത്രിയുടെ നേതൃത്വത്തിൽ തികഞ്ഞ പ്രതീക്ഷയി ലാണ് മുംബൈയിൽ രാത്രി എട്ടിന് ഇന്ത്യ കളിക്കിറങ്ങുന്നത് ടൂർണമെന്റിൽ ആറ് ഗോളുകളുമായി ഛേത്രി ടോപ്പ് സ്കോററാണ് ലീഗ് മത്സരത്തിൽ എതി രില്ലാത്ത മൂന്നു ഗോൾക്ക് ഇന്ത്യ കെനിയയെ പരാജയപ്പെടുത്തിയിരുന്നു രിട്ട്ട്ടിട്ടിട്ടി കൊല്ലം ജില്ലയിൽ കരിമ്പനി കണ്ടെത്തിയ കുളത്തൂപ്പുഴ വില്ലുമല കോ ളനിയിൽ ന്യൂഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺ ട്രോളിൽനിന്നുള്ള വിദഗ്ധ സംഘം സന്ദർശനം നട്ത്തി സ്ഥിതി വിലയിരു ത്തി കോളനിയിലെ വീടുകളിൽ പരിശോധന നടത്തിയ സംഘം രോഗം പ രത്തുന്ന മണലീച്ചയുടെ സാന്നിദ്ധ്യമില്ലെന്ന് ഉറപ്പുവരുത്തി വീടുകളിൽനിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയും മണലീച്ചുകളെ ഒ ഴിവാക്കുന്നതിന് മരുന്നു തളിക്കുകയുംചെയ്തു

ഇതര സംസ്ഥാന തൊഴി ലാളികളുടെ സാന്നിധ്യമില്ലാത്ത മേഖലയിൽ കണ്ടെത്തിയ രോഗം തദ്ദേശീ യമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ക്കാട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമഗ്ര നിയമനിർമ്മാണം ഗവ ആലോചിക്കുകയാണെന്ന് മന്ത്രി എ

കേരള ചലച്ചിത്ര അക്കാദമിയുടെ പത്താമത് ദേശീയ ചലച്ചിത്രോത്സവം പയ്യന്നൂർ രാജധാനി തിയറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു രാട്ട്ടിരി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ഡിസ്പെൻസറി യെന്ന ലക്ഷ്യം അടുത്ത മൂന്ന് വർഷത്തിനകം സാക്ഷാൽക്കരിക്കുമെന്ന് മ ന്ത്രി കെ

പരിയാരം മെഡിക്കൽ കോളേജിനോടനു ബന്ധിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേക ഹോമിയോ ആശുപ ത്രി സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ആറളം ഫാമിൽ ഐ പി സൌകര്യത്തോടെ ഹോമിയോ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സം സാരിക്കുകയായിരുന്നു മന്ത്രി

പട്ടിക ജാതി വകുപ്പ് കണ്ണൂർ ശ്രീകണ്ഠാപുരം കോട്ടൂരിൽ പുതുതായി നിർമ്മിച്ച പ്രീമെട്രി ക് ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം ള്ള്ടെടി എല്ലാവർക്കും സ്വന്തം വീടുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോകുകയാണെന്ന് മന്ത്രി ടി

പാവപ്പെട്ടവർക്ക് വീടും അടിസ്ഥാന സൌകര്യവും ഒരുക്കലാണ് ഗവൺമെന്റ് ദൌത്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി

രിയ്ക്ക് ടെയ വിദ്യാലയങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ തട യാൻ ജനങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ സഹായിക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കാസർകോട് ബദിയടുക്ക എക്സൈസ് റെയ്ഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കു കയായിരുന്നു മന്ത്രി രരാട്ടിര സംസ്ഥാന ലോട്ടറിയുടെ വരുമാനം മുഴുവൻ ആരോഗ്യ മേഖലക്കായി വിനിയോഗിക്കുമെന്ന് മന്ത്രി ഡോ

ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തി പൂർത്തിയാ ക്കിയ കണ്ണൂർ ജില്ലയിലെ കണ്ടോംദാർ ജയിൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുടെട്ടിട ആരോഗൃമേഖലക്ക് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നതെന്നും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റികൊണ്ടിരിക്കുകയാ ണെന്നും മ്യന്തി കടകംപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞു

പിക്കെതിരെ കോൺഗ്രസിന് വലിയ ഒറ്റകക്ഷി ആകാൻ വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്ന് മുസ്ലിംലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം

രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നതെല്ലാം ചായക്കോപ്പയിലെ കൊടു ങ്കാറ്റാണെന്നും അദ്ദേഹം താനൂരിൽ പറഞ്ഞു

സി സി ജനറൽ സെക്രട്ടറി പ്രദീപ് വട്ടിപ്രത്തെ പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെന്റ് ചെയ്തതായി കെ

സി പ്രസിഡണ്ട് എം